പി ജയരാജൻ മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ നാളെയും മറ്റന്നാളുമായി പൊളിക്കും

പി ജയരാജൻ പറഞ്ഞു കൊച്ചിയിൽ നിക്ഷേപക സംഗമത്തോടനുബന്ധിച്ച പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറോളം വ്യവസായ പദ്ധതികൾ ഗവൺമെന്റ് തയാറാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് സ്വകാര്യപാർക്കുകൾ ആരംഭിക്കാൻ വ്യക്തികൾക്ക് ഗവൺമെന്റ് എല്ലാ സഹായവും നൽകും

മരടിലെ അനധികൃത ഫ്ളാറ്റുകൾ നാളെയും മറ്റന്നാളുമായി പൊളിക്കും സ്ഫോടക വസ്തു ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട മോക്ഡ്രിൽ രാവിലെ നടക്കും ഫ്ളാറ്റുകൾ പൊളിക്കുന്ന സമയത്തിൽ അവ്യക്തതയില്ലെന്നും തദ്ദേശവാസികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറി ടോംജോസ് വൃക്തമാക്കി പ്രകമ്പനം കുറയ്ക്കാൻ സ്ഫോടക വസ്തുക്കളുടെ അളവ് കുറച്ചിട്ടുണ്ട് ഇന്നലെ പൊളിക്കുന്ന ഫ്ളാറ്റുകൾ സന്ദർശിച്ച ചീഫ് സെക്രട്ടറി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി

സ് ഫോടന സമയത്ത് സമീപത്തെ റോഡുകളിലും ഗതാഗതം നിരോധിക്കും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സൌരോർജ്ജ പദ്ധതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ നാളെയും മറ്റന്നാളും കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും നാളെ വൈകീട്ട് കോഴിക്കോട് ബീച്ചിലെ കൌമുദി നൈറ്റിലും മന്ത്രി സംബന്ധിക്കും

ഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തോളം വിദ്യാർഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുക്കും പരീക്ഷാ പേ ചർച്ചയുടെ മൂന്നാം പതിപ്പാണ് ഇത്

ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം പരിപാടി ലഭ്യമാണ്

എം അറിയിച്ചു സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ കുറ്റത്തിന് ആലപ്പുഴ പുളിങ്കുന്ന് പൊലീസ് അറസ്റ്റ് ചെയ്ത നാല് പ്രതികളും ഭരണകക്ഷി അനുകൂല സംഘടനാ പ്രവർത്തകരാണ് സംസ്ഥാനത്തിന്റെ അതിഥിയായി കേരളത്തിലെത്തിയ നൊബേൽ ജേതാവ് മൈക്കിൾ ലെവിറ്റിനെ പണിമുടക്കനുകൂലികൾ തടഞ്ഞ സംഭവം ലോകത്തിന് മുന്നിൽ മലയാളികളെ നാണം കെടുത്തുന്നതാണെന്ന് നോവലിസ്റ്റ് എം മുകുന്ദൻ കോഴിക്കോട്ട് പറഞ്ഞു

എ കൊടുങ്ങല്ലൂർ കഥാപുരസ്കാരം ജി ആർ ഇന്ദുഗോപ്ന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളിക്ളുടെ ജീവിത സാഹചരൃം മാറിയെങ്കിലും സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സാംസ്കാരിക പ്രവർത്തകർക്ക് സാധിക്കില്ലെന്നും മുകുന്ദൻ അഭിപ്രായപ്പെട്ടു രാത്രികാലങ്ങളിൽ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത കേന്ദ്രവും പ്രഭാത ഭക്ഷണവും നൽകുമെന്ന് മന്ത്രി ടി

കോഴിക്കോട് തിരുവള്ളൂർ ഗ്രാമ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് താക്കോൽദാനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി

കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലാണ് യേശുദാസും കുടുംബവും പിറന്നാൾ ആഘോഷിക്കുന്നത് അൽപ സമയത്തിനകം അദ്ദേഹം ദേവീ സന്നിധിയിൽ ഗാനാർച്ചന നടത്തും പ്രണയവും വിരഹവും വേദനയും സായൂജ്യവും ഭാവസംഗീതമായി മലയാളിയുടെ മനസിലെത്തിച്ച അനശ്വര ഗായകന് ആസ്വാദക ലോകത്തോടൊപ്പം ആകാശവാണിയും ആശംസകൾ നേരുന്നു ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീംകോടതി പുതിയ സത്യവാങ്മൂലം നൽകുന്നത് ചർച്ച ചെയ്യാൻ തിരുവിതാംകൂർ ദേവസം ബോർഡ് ഇന്ന് യോഗം ചേരും വൈകീട്ട് തിരുവനന്തപുരത്താണ് യോ ഗം

ഉദ്ഘാടന ചടങ്ങിൽ അസം മുഖ്യമന്ത്രി സർബാനന്ദ് സൊനോവാൾ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പ്രമുഖ കായിക താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും

പരമ്പരയിൽ ഒരു വിജയം നേടിയ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ് ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു ഐലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സിക്ക് തോൽവി കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്നലത്തെ മത്സരത്തിൽ നിലവിൽ ചാമ്പ്യൻമാരായ ചെന്നൈ സിറ്റി എഫ് സി രണ്ടിനെതിരെ മൂന്ന് ഗോളിനാണ് ഗോകുലം കേരള എഫ് സിയെ തോൽപ്പിച്ചത് ഇതോടെ ലീഗിൽ ചെന്നൈ സിറ്റി എട്ട് പോയിന്റോടെ നാലാം സ്ഥാനത്തേക്കുയർന്നു ഗോകുലം എഫ്

മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ പി വി സിന്ധുവും സൈന നെവാളും കാർട്ടർ ഫൈനലിലെത്തി കാർട്ടറിൽ ചൈനീസ് തായ്പെയ് താരം തായ്സൂ യിങ്ങിനെ സിന്ധു നേരിടുമ്പോൾ ഒളിംപിക് ചാമ്പ്യൻ സ്പെയിനിന്റെ കരോലിന മാരിനാണ് സൈനയുടെ എതിരാളി

മലയാളി താരങ്ങളായ മിന്നു മണിയും ജിൻസി ജോർജ്ജും ടീമിൽ ഇടം നേടി

എസ് എൽ ഫുട്ബോളിൽ ജംഷഡ്പൂരിനെ മറുപടിയില്ലാത്ത രണ്ടു ഗോളുകളിന് ബെങ്കളൂരു എഫ്

ഇന്ന് ഹൈദരാബാദ് ചെന്നൈയിൻ എഫ് സിയെ നേരി ടും ആർദ്രം ജില്ലാതല ജനകീയ കൃാംപയിനും ആശാ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പ്രഖ്യാപനവും നാളെ മലപ്പുറത്ത് മന്ത്രി കെ

പരിപാടിയിൽ സത്ജീവിതം പാക്കേജിന്റെയും ആശാവർക്കർമാർക്ക് നടപ്പാക്കിയ ജാല പരിശ്രീലന പരിപാടിയും പാലിയേറ്റീവ് നഴ്സ് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനവും ഇതോടൊപ്പം നടക്കും കോഴിക്കോട്ടെ എം വി ആർ കാൻസർ സെന്ററിലേക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന രണ്ടാമത്തെ കെ എസ്

സി ബസ് ്മന്ത്രി എ

അന്യജില്ലകളിൽ നിന്നെത്തുന്ന രോഗികളുടെ സൌകര്യത്തിന് രാവിലെ ആറ് മുതൽ വൈകീട്ട് ആറു വരെ ബസ് അഞ്ച് സർവ്വീസ് നടത്തും ജീവനി പദ്ധതിയിലൂടെ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയാണ് കൃഷി വകുപ്പ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു കാഞ്ഞങ്ങാട്ട് കാർഷിക വകുപ്പിന്റെയും മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റേയും സഹായത്തോടെ നടപ്പിലാക്കിയ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മലപ്പുറം ജില്ലാതല പട്ടയ മേള രാവിലെ ടൌൺഹാളിൽ മന്ത്രി ഇ

ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ മാനന്തവാടി ബ്ലോക്ക്തല ഒത്തുചേരൽ മന്ത്രി വി എസ് സുനിൽകുമാർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ട ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ തൊടുപുഴ നഗരസഭാതല കുടുംബ സംഗമവും അദാലത്തും മുനിസിപ്പൽ ടൌൺഹാളിൽ പി

ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കുടുംബ സംഗമം തിങ്കളാഴ്ച ഡീൻകുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും കോതമംഗലം പള്ളി രണ്ടാഴ്ചയ്ക്കകം ഏറ്റെടുക്കണമെന്ന് ഹൈക്കോടതി ഗവൺമെന്റിന് നിർദേശം നൽകി വിധി നടപ്പായില്ലെങ്കിൽ ജില്ലാ കലക്ടർ നേരിട്ട് ഹാജരാകേണ്ടി വരുമെന്ന് കോടതി അറിയിച്ചു

നീലേശ്വരത്ത് വഴിയാത്രക്കാരനെ ഇടിച്ച ശേഷം നിർത്താതെ പോയ കാറിൽ നിന്നാണ് പണം പിടികൂടിയത്

യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തും എം

അഫിലിയേറ്റഡ് കോളജുകളിലെ യൂണിയൻ കൌൺസിലർമാർക്ക് തുല്യനീതി ഉറപ്പാക്കണമെന്ന ആവശൃത്തിൽ കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്ന് അവർ പറഞ്ഞു